രോഗവ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ നിരോധനാജ്ഞ നീട്ടാൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തൽ ത ബിഹാറിൽ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ ഇന്ന് എൻഡിഎ യോഗം സത്യപ്രതിജ്ഞ നാളെ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ട്

പ്രചാരണ പ്രവർത്തനങ്ങളെയും ഔദ്യോഗിക നടപടികളെയും ബാധിക്കാത്ത തരത്തിലായിരിക്കും കോവിഡ് നിയന്ത്രണ നടപടികൾ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്ക് പിഴ ശിക്ഷ വർദ്ധിപ്പിച്ച ഭേദഗതി ഉത്തരവ് ശക്തമായി നടപ്പാക്കാൻ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടായേക്കും

രും കോവിഡ് വാക്സിൻ ലഭ്യമായാൽ വിതരണത്തിന് സംസ്ഥാന ആരോഗ്യവകുപ്പ് കർമ്മപദ്ധതി തയാറാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചു പിഴവില്ലാത്ത വാക്സിൻ വിതരണത്തിനായി സമഗ്ര പദ്ധതിയാണ് ആവിഷ്ക്കരിച്ചിരിക്കുന്നത് കേന്ദ്ര നിർദേശങ്ങൾ പാലിച്ചായിരിക്കും ജനങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന്റെ മുൻഗണന തീരുമാനിക്കുന്നത്

ഈ സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ ജീവനക്കാരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദേശിച്ചു

ഓരോ പാർട്ടിയുടേയും മന്ത്രിസഭാ പ്രാതിനിധ്യവും സ്പീക്കർ തെരഞ്ഞെടുപ്പും യോഗം ചർച്ച ചെയ്യും

പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്

ദ്ദേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സമാധാനത്തിന്റെ പ്രതിമ രാജസ്ഥാനിലെ പാലിയിൽ അനാവരണം ചെയ്യും ജൈന ആചാര്യൻ മഹാവീരന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച പരിഷ്ക്കർത്താവും സാമൂഹ്യ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിരന്തരം പോരാടിയ ജൈന സന്യാസിയുമായിരുന്ന ശ്രീ വിജയവല്ലഭ് സുരീശ്വർജി മഹാരാജിന്റെ പ്രതിമയാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ അനാവരണം ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സജീവ പിന്തുണ നൽകിയ അദ്ദേഹം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഉദയത്തിനും വഴിയൊരുക്കി

രും ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക്കിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു വെള്ളിയാഴ്ച്ച നടത്തിയ അക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് രാജ്യത്തിന്റെ പ്രതിഷേധം അറിയിച്ചത്

അതിർത്തിയിലൂടെ ഭീകര പ്രവർത്തകരെ നുഴഞ്ഞു കയറാൻ സഹായിക്കുന്ന പാകിസ്ഥാന്റെ നടപടിയിലും വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു

അക്കാദമികളിലെ സൌകര്യങ്ങൾ നവീകരിച്ച് പരിശീലന സൌകര്യം മെച്ചപ്പെടുത്താനും അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കാനുമാണ് ഈ സാമ്പത്തിക വർഷം മുതൽ അടുത്ത നാലു വർഷം സഹായം നൽകുന്നത് പരിശീലന നടപടികളും ഗ്രൌണ്ട് ഉൾപ്പെടെ ലഭ്യമായ സൌകര്യങ്ങളും വിലയിരുത്തിയായിരിക്കും അർഹരായ അക്കാദമികളെ തെരഞ്ഞെടുക്കുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വിദൂരമായ പ്രദേശങ്ങളിൽ പോലും കായിക പ്രതിഭകളെ കണ്ടെത്താനും പരിശീലനം നൽകാനും ഇതുവഴി സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു പുതിയ കായിക താരങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനും അവരെ മത്സര സജ്ജരാക്കുന്നതിനും സ്വകാര്യ മേഖലയിലെ നിരവധി അക്കാദമികൾക്ക് കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രംഭ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിന്റെ അഭിമാന വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് നാളെ ഇടതുമുന്നണി ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കും

വിജയരാഘവൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി

രുര സംസ്ഥാന ഗവൺമെന്റിന്റെ അഴിമതി തുറന്നുകാണിച്ചതിന്റെ പേരിൽ കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിനെ മന്ത്രി ഡോ

ഇത്തരം ഭരണഘടനാ സ്ഥാപനത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു കിഫ്ബിയിലെ വരവും ചെലവും ദുരൂഹമാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു രുര പുതിയൊരു മണ്ഡലകാലത്തിന് തുടക്കം കുറിക്കാൻ വൈകീട്ട് ശബരിമലയിൽ നട തുറക്കും തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എ

സുധീർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും ദീപാരാധനയ്ക്ക് ശേഷം ശബരിമലയിലേയും മാളികപ്പുറത്തേയും മേൽശാന്തിമാരെ അഭിഷേകം ചെയ്ത് പദവികളിൽ അവരോധിക്കും വൃശ്ചികം ഒന്നായ നാളെയാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത് വെർച്വൽക്യൂ വഴി ബുക്ക് ചെയ്ത ഭക്തർക്ക് നാളെ മുതൽ പ്രവേശനം നൽകും

സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിലക്കലിൽ എത്തുന്നവരെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് കടത്തിവിടുക രമേ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ബാല സൌഹൃദ കേരളം പ്രചാരണ പരിപാടി തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്ത ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്താനാണ് കമ്മീഷൻ ബാലാസൌഹൃദ കേരളം പരിപാടിക്ക് തുടക്കമിട്ടത്

മനോജ് കുമാർ പറഞ്ഞു

സുരേന്ദ്രൻ പങ്കെടുക്കും

മാണി വിഭാഗവും തമ്മിൽ സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല